കേന്ദ്ര വ്യോമയാന മന്ത്രി അല്പസമയത്തിനകം കരിപ്പൂരിലെത്തും

കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു

കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ലെന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്ന് കേന്ദ്രസഹമന്ത്രി വ്യക്തമാക്കി വന്ദേഭാരത് മിഷന്റെ ഭാഗമായി വലിയ വിമാനങ്ങൾ അടുത്തിടെ കരിപ്പൂരിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു റൺവേ പുതുക്കിയ ശേഷം വലിയ വിമാനങ്ങൾ ഇറക്കാൻ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ അനുമതി നൽകിയിട്ടുണ്ടെന്ന് മുരളീധരൻ വിശദീകരിച്ചു മരിച്ചവരുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും പരിക്കേറ്റവരെയും സഹായിക്കാൻ എയർ ഇന്ത്യ ആശ്വാസ ദൌത്യവുമായി മൂന്ന് വിമാനങ്ങൾ കരിപ്പൂരിലേക്കയച്ചു എയർ ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ രാജീവ് ബെൻസൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ചീഫ് എക്സിക്യുട്ടീവ് ഓഫീസർ കെ ശ്യാം സുന്ദർ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്

പ്രധാനമന്ത്രിയുടെ നിർദ്ദേശ പ്രകാരം രണ്ട് അന്വേഷണ സംഘങ്ങൾ ഇതിനകം കരിപ്പൂരിലെത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്

രുമ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പൊലീസ് മേധാവിയും അടങ്ങുന്ന സംഘം രാവിലെ കരിപ്പൂരിലെത്തി അപകട സ്ഥലത്തെത്തിയ ശേഷം മുഖ്യമന്ത്രിയും സംഘവും അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തും രുമ കോവിഡ് ഭീതിയും അപകട സാധ്യതയും അവഗണിച്ച് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ അധികൃതരോടൊപ്പം നാട്ടുകാരും മുന്നിട്ടിറങ്ങിയത് സഹ ജീവി സ്നേഹത്തിന്റെ ഉദാത്ത അനുഭവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദ്രുതഗതിയിൽ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടാനായത് വലിയൊരു അളവ് വരെ ദുരന്ത വ്യാപ്തി കുറയ്ക്കാൻ ഇടയാക്കിയതായി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു

അപകടം വെള്ളപ്പൊക്കം എന്നിവയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പിണറായി മുന്നറിയിപ്പ് നൽകി ദ്രദ അപകടത്തിൽപെട്ട വിമാനത്തിലെ നാല് ജീവനക്കാർ സുരക്ഷിതരാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു ഇവർ പരിക്കേറ്റ് കോഴിക്കോട്ട് ചികിത്സയിലാണ് രുക കരിപ്പൂർ വിമാനത്താവളത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കണമെന്ന് മന്ത്രി കെ

പോസ്റ്റുമോർട്ടത്തിന് തൊട്ടുമുമ്പ് നടത്തിയ സ്വാബ് ടെസ്റ്റിലാണ് സുധീർ വാര്യത്ത് എന്നയാൾക്ക് കോവിഡ് കണ്ടെത്തിയത്

കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മന്ത്രി കെ

രുര കരിപ്പൂർ വിമാനത്താവളത്തിലെ അപകടത്തെ തുടർന്ന് അവിടെ ഇറങ്ങേണ്ടിയിരുന്ന രണ്ട് വിമാനങ്ങൾ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലിറങ്ങി

ദേദ മൂന്നാർ രാജമല പെട്ടിമുടിയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ അഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു

വിശദാംശങ്ങൾ നൽകുന്നത് ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

വിശദാംശങ്ങൾ നൽകുന്നത് ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

നിരവധി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി

അട്ടപ്പാടി പറമ്പിക്കുളം മേഖലകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്

രുമ ശക്തമായ മഴ തുടരുന്ന കോഴിക്കോട് ജില്ലയിൽ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു

കക്കയം കുറ്റ്യാടി ഡാം പ്രദേശങ്ങളിൽ നിന്ന് താമസക്കാരെ മാറ്റിപാർപ്പിക്കാൻ നടപടി എടുത്തുവരികയാണ്

രുര കനത്ത മഴയെത്തുടർന്ന് വെള്ളക്കെട്ടിലായ പാല നഗരത്തിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി

ദരദ മലപ്പുറം ജില്ലയിൽ ഒരാൾകൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട്

ദേദ എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു